നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രി ഹർഷ് വർദ്ധൻ

കേരളത്തിൽ നിയന്ത്രണം കർശനമാക്കി

പശ്ചിമബംഗാൾ പോളിംഗ് നാളെ

എല്ലിൽ ഇന്ന് പഞ്ചാബ് കിംങ്സ് ചെന്നൈ സൂപ്പർ കിംങ്സ് പോരാട്ടം

രാജ്യത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും മെഡിക്കൽ ഓക്സിജൻ വെന്റിലേറ്ററുകൾ തുടങ്ങിയ അവശ്യവസ്തുക്കൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് വർദ്ധിച്ചുവരുന്ന സംസ്ഥാനങ്ങളിലെ ആരോഗൃ മന്ത്രിമാരുമായി ശ്രീ ഹർഷ് വർദ്ധൻ നാളെ കൂടിക്കാഴ്ച നടത്തും

വ്യാപകമായ പരിശോധന കർശന നിയന്ത്രണം ഊർജിതമായ വാക്സിനേഷൻ എന്നീ മൂന്നിന പരിപാടികളിലൂടെ കോവിഡ് വ്യാപനം തടയാൻ ഇന്നലെ ചേർന്ന പ്രത്യേക യോഗത്തിൽ തീരുമാനമായി ഇന്നും നാളെയുമായി രണ്ടര ലക്ഷം പേർക്ക് കോവിഡ് പരിശോധന നടത്തും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവമായി പങ്കെടുത്തവരെയും രോഗസാധ്യത കൂടുതലുള്ള ജോലികൾ ചെയ്യുന്നവരേയുമാണ് കൂടുതലായി പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത് ഇതിന് പുറമേ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിലും നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്

പാർലമെന്ററികാരൃ മന്ത്രിമാരും ചീഫ് വിപ്പ് പ്രതിപക്ഷ നേതാക്കൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും പകർച്ച വ്യാധികൾ നിയന്ത്രിക്കുന്നതിൽ ജനപ്രതിനിധികളുടെ പങ്കിനെ കേന്ദ്രീകരിച്ചായിരിക്കും യോഗം

വിദ്ദഗ്ദ്ധ് സമിതിയുടെ ശുപാർശ പ്രകാരം ഒരു വർഷത്തേക്കാണ് അനുമ്തിയെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മഹാരാഷ്ട്ര സർക്കാരിനെ അറിയിച്ചു ഇതോടെ ഹഫ്കിൻ ബയോഫാർമയ്ക്കും കോവാക്സിൻ ഉൽപാദനം ഉടൻ തന്നെ ആരംഭിക്കാനാകും ഹഫ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കോവാക്സിൻ ഉൽപാദിപ്പിക്കാൻ അനുമതി നൽകിയതിൽ മഹാരാഷ്ട്ര മുഖൃമന്ത്രി ഉദ്ധവ് താക്കറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചു

ഇന്തൃയിൽ സ്പുട്നിക് വാക്സിന്റെ നിർമ്മാണം പ്രതിമാസം അഞ്ചുകോടി ഡോസ് എന്ന നിലയിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യയിൽ അനുമതി ലഭിക്കുന്ന മൂന്നാമത്തെ കോവിഡ് വാക്സിനാണ് സ്പുട്നിക്

ഒഡിഷയിലെ പിപ്പലീ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സ് സ്ഥാനാർത്ഥിയുടെ മരണത്തെത്തുടർന്ന് മാറ്റി വെച്ചിരുന്നു

ഉയരുന്ന കോവിഡ് കേസുകളുടെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയോടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്

കോവിഡിന്റെ പ്രിച്ചാത്തലത്തിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ആയിരം വോട്ടർമാർക്കാണ് വോട്ട് ചെയ്യാൻ സജ്ജീകരണം ഒരുക്കുന്നത്

കോവിഡ് രോഗികൾക്കുട്ട് നിരീക്ഷണത്തിലുള്ളവർക്കും പോസ്റ്റൽ ബാലറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്

കോവിഡ് വ്യാപനവും മറ്റ് അനിഷ്ടസംഭവങ്ങളും ഒഴിവാക്കാൻ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി

ഇതോടെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് എടുത്ത രണ്ട് കേസുകളും നിലനിൽക്കില്ല

വിധി സ്വാഗതാർഹമെന്ന് കേന്ദ്ര സഹ്മിന്തി വി മുരളീധരൻ പ്രതികരിച്ചു

എം ഷാജി എം

വരവിൽകവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്

സാമൂഹിക അകലം മാസ്ക് സാനിറ്റൈസർ ഉപയോഗം എന്നിവ സംബന്ധിച്ചായിരിക്കും ബോധവൽക്കരണം മുതിർന്ന പൌരന്മാർ ജനത്തിരക്കേറിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണം ഇന്നത്തെയും നാളെത്തെയും കോവിഡ് പരിശോധനയ്ക്ക് ശേഷം തുടർ മാർഗ നിർദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്നും ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

നാളെയും മറ്റന്നാളും കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്

ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ മൂന്ന് വിക്കറ്റിന് പരാജയപ്പെടുത്തി

രാജ്യത്തിന്റെ ജനാധിപതൃ പ്രക്രിയയിൽ ഇടപെടാൻ ഒരു വിദേശ ശക്തിയേയും അനുവദിക്കാനാവില്ലെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി